വിതച്ച് ഉം പൂൻ ചൂഴലിക്കാറ്റ്

റ്ഷ്യ്യിൽ നിന്നും കുവൈറ്റിൽ നിന്നുള്ള വിമാന്ം ഇന്നലെ തിരുവനന്തപുരത്തെത്തി

കൊൽക്കത്ത ഹൌറ ഹൂഗ്ലി നോർത്ത് സൌത്ത് പർഗാനാസ് ജില്ലകളിലാണ് ഏറ്റവുമധികം നാശനഷ്ടമുണ്ടായത് പലയിടത്തും വൈദ്യുതിബന്ധം തകരാറിലായി ഒഡീഷയിൽ വീശിയടിച്ച കാറ്റിലും കനത്ത മഴയിലും ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇരു സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് ആറര ലക്ഷം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേയ്ക്ക് മാറ്റി പാർപ്പിച്ചതായി ദേശീയ ദുരന്ത നിവാരണ സേന അറിയിച്ചു രണ്ട് പതിറ്റാണ്ടിനിടയ്ക്ക് ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട അതിതീവ്ര ചുഴലിക്കാറ്റ് ഉം പുൻ ഇന്നലെ നാലരയോടയാണ് തീരംതൊട്ടത്

സൌദി അറേബ്യ യു

കൂടുതതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി കെ

ശശിധരൻ

കൂടുതൽ വിവരങ്ങളുമായി് മലപ്പുറത്തു നിന്നും ആകാശവാണി പ്രതിന്റിസ്റ്റി പ്സുരേഷ് ബാബു

അഞ്ചു വർഷമാണ് പദ്ധതി കാലാവധി പദ്ധതിയുടെയോ യൂണിറ്റിന്റെയോ മുഴുവൻ ചെലവും കേന്ദ്ര ഗവൺമെന്റ് വഹിക്കാനും പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നു

ഐ

കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ വികസനം കൊണ്ടുവരുന്നതിന് പദ്ധതി വഴിയൊരുക്കുമെന്ന് ശ്രീ

ഇത്തരം തൊഴിലാളികൾക്ക് പദ്ധതി വളരെയേറെ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു

ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്

വിദേശത്തു നിന്നും ക്രിറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ പേർ എത്തുന്നിട്ട് സാഹചര്യത്തിലാണ് അധിക തസ്തികകൾ സൃഷ്ടിച്ചതെന്ന് മുഖ്യ്മന്ത്രി അറിയിച്ചു

സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ കേന്ദ്രമാറ്റത്തിനായി ഓൺലൈനായി അപേക്ഷിക്കാം

നിലവിൽ സർവീസ് നടത്തുന്ന ശ്രമിക് ട്രെയിനുകൾ പ്രത്യേക എ സി ട്രെയിനുകൾ എന്നിവയ്ക്ക് പുറമേയാണ് പുതിയ ട്രെയിൻ സർവ്വീസുകളെന്ന് റെയിൽവേ മ്ന്ത്രാലയം അറിയിച്ചു പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുക്കൾ പുതിയ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർവ്വീസ് ഇട്ടത്തില്ലെന്നും ടിക്കറ്റ് ചാർജ് വൃത്യാസമുണ്ടാകില്ലെന്നും ട്രെയിനിനുള്ളിൽ ഭക്ഷണ്ടവിതർണം ഉണ്ടാകില്ല

പാഴ്സൽ സേവനങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ